കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധുമ്മെന്ന് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് കോവിഡ് വൃഷ്ട്രന്ം വർദ്ധിക്കുന്നു

എസ് ആർ ഒ ചാരക്കേസിലെ ഗൂഢാലോചന ന് സിബിഐ അന്വേഷിക്കും ഐ

ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം

നാല് ദിവസത്തെ വാക്സിനേഷൻ യജ്ഞത്തിലൂടെ വാക്സിൻ എടുത്തവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിപ്പിക്കാനും പുതിയ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കാനും കഴിഞ്ഞതായി പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡ് പോരാട്ടം കഴിഞ്ഞ വർഷം സ്വന്തം ചുമതലയായി ഏറ്റെടുത്ത പൌരന്മാരെ പ്രധാനമന്ത്രി അഭ്ടിനന്ദിച്ചു

സാമൂഹ്യ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഗ്വൺമെന്റിതര സംഘടനകളും സ്ഥാപനങ്ങളും ഒത്തുചേർന്ന് കോവിഡിനെതിരെ പോരാട്ടം തുടരണമെന്നും പ്രധാനീമന്ത്രി പറഞ്ഞു

രാജ്യത്ത് വാക്സിൻ ക്ഷാമമില്ലെന്നും വാക്സിനേഷൻ യജ്ഞത്തിനുളള സംസ്ഥാനങ്ങളുടെ ആസൂത്രണം മെച്ചപ്പെടണമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി

കൂടുതൽ വാക്സിൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വാക്സിൻ കൂറ്റപ്പെടുയതിനാൽ സംസ്ഥാനത്ത് ആശങ്കാജനകമായ സ്ട്രീഹചര്യമാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു വാക്സിൻ ക്ഷാമമ്മുള്ള ്കാര്യം കേന്ദ്ര ആരോഗൃമന്ത്രിയുടെയും ആരോഗൃവകുപ്പ് സെക്രട്ടറിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ആ്ടുത്ത ദിവസങ്ങളിൽ വലിയ തോതിൽ വാക്സിൻ ലഭ്യ്മായിട്ടില്ലെങ്കിൽ സംസ്ഥാനത്തെ മെഗാ വാക്സിനേഷൻ പദ്ധതീട്ട്അ്വതാളത്തിലാകുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു

കളക്ടർമാർ ജില്ലാ പൊലീസ് മേധാവികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാനത്തെ നിലവിലെ കൊവിഡ് സാഹചരൃം വിലയിരുത്താൻ വേണ്ടിയാണ് അടിയന്തിര യോഗം വിളിച്ചത്

ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കോവിഡ് ടെസ്റ്റിനുള്ള സൌകര്യവും ഇവിടെ ഏർപ്പെടുത്തും

മകന് കോവിഡ് സ്ഥിരീകരിച്ചതിന് പിന്നാളലുയ്ാണ് മന്ത്രിക്ക് ആർ

ആർ പരിശോധന നടത്തിയത്ത് ്തുടർന്ന് രോഗം സ്ഥിരീകരിക്കുകയായിരു്ന്നു

കൂടാതെ കൂത്തുപറമ്പ് മുനിസിപ്പൽ സ്റ്റേഡിയം പവലിയൻ പയ്യന്നൂർ ബോയ്സ് സ്കൂൾ ചെങ്ങളായി പ്രാഥമികാരോഗ്യ കേന്ദ്രം ചെറുപുഴ ജെ എം

പി സ്കൂൾ തലശ്ശേരി ജില്ലാ കോടതി എന്നിവ കോവിഡ് മെഗാ വാക്സിനേഷൻ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കും

ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിലാണ് പടയണിവട്ടം സ്വദേശി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് ഇന്നലെ രാത്രിയാണ് സംഭവം പ്രതിയെന്ന് സംശയിക്കുന്ന സഞ്ജയ് ദത്തിന്റെ പിതാവിനെയും സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു

എസ് ആർ ഒ ചാരക്കേസിലെ ഗൂഢാലോചന സിബിഐ അന്വേഷിക്കുമെന്ന് സുപ്രീംകോടതി മൂന്ന് മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നും സുപ്രീംകോടതി സിബിഐ യ്ക്ക് നിർദ്ദേശം നൽകി ശ്യാസ്ത്രജ്ഞൻ നമ്പി നാരായണനെ ഐ

ഒ ചാര്ട്ടുക്ക്സിൽ കുടുക്കിയത് ആരെന്ന അന്വേഷണ റിപ്പോർട്ട് ഇബ്മ് പ്രിഗണിക്കവെയാണ് സുപ്രീംകോടതി പുതിയ ഉത്തർവ് പ്രുറപ്പെടുവിച്ചത് ജസ്റ്റിസ് ഡി കെ ജെയിൻ സമിതിയുട്ട് റ്റിപ്പോർട്ടാണ് ജസ്റ്റിസ് എ

റിപ്പോർട്ട് പരസ്യപ്പെടുത്താനുള്ളതല്ലെന്ന് പറഞ്ഞ കോടതി പകർപ്പ് വേണമെന്ന നമ്പി നാരായണന്റെ ആവശ്യവും അംഗീകരിച്ചില്ല

പ്രോട്ടോകോൾ പാലിക്കാതെയാണ് മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തിയതെന്നും രോഗം ബാധിച്ച് ആറാം ദിവസം അദ്ദേഹം ആശുപത്രി വിട്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു പ്രാഥമിക സമ്പർക്കപ്പട്ടികയിലുള്ളവർ പെരുമാറേണ്ട രീതിയിലല്ല മുഖ്യമന്ത്രി പെരുമാറിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മുഖ്യമന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന വാർത്തകൾ ആരോഗ്യമന്ത്രി കെ

നേവിയൂം കോസ്റ്റ്ഗാർഡും കോസ്റ്റൽ പോലീസും രാവിലെ ഏര്ച്ചിൽ ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു നേവിയുടെ മ്ലൂന്ന് കപ്പലുകളും ഒരു വിമാനവും മുങ്ങൽ വിദഗ്ദ്ധ സംഘവും തെരച്ചിലിന് എത്തിയിട്ടുണ്ട് ബേപ്പൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിനായെത്തിയ ബോട്ട് ചൊവ്വാഴ്ച പുലർച്ചെയാണ് പുറം കടലിൽ വിദേശകപ്പലുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്

ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്ന് പോലീസ് അറിയിച്ചു

എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപ്പിറ്റൽസിനെ നേരിടും

ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ആറ് റൺസിന് തോൽപ്പിച്ചിരുന്നു

എം വ്യാപക സംഘർഷത്തിന് തയ്യാറെടുക്കുകയാണെന്ന് ബിജെപി കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ

വിനോദ് കുമാർ

സൃശ്ദ്രവൃത്തെക്കുറിച്ച് സിറ്റി കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ക്യുന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

എം ഷാജിയോട് പ്പോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് വിജിലൻസ് നോട്ടീസ് നൽകി കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വീടുകളിൽ നിന്ന് കണ്ടെടുത്ത പണത്തിന്റെയും സ്വർണ്ണത്തിന്റെയും ഉറവിടത്തെക്കുറിച്ചും വിശദീകരിക്കാൻ വിജിലൻസ് ആവശ്യപ്പെട്ടു

പള്ളിത്തോട്ടം സ്വദേശികളായ ഷിബു ലാലു അഗസ്റ്റിൻ എന്നിവർക്കാണ് പൊള്ളലേറ്റത്

വൈകിട്ട് അഞ്ച് മണിയോടെ മത്സ്യബന്ധനത്തിനായി വാടിയിൽ നിന്ന് വള്ളം തള്ളി കടലിലേക്ക് ഇറക്കവെയാണ് ഇടിമിന്നലേറ്റത്

തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്